ആരോഗ്യവകുപ്പ് കരുതൽ നടപടികൾ സ്പീകരിച്ചതായി മന്ത്രി കെ

ജയരാജൻ ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം

എലിപ്പനിക്കെതിരെ ആരോഗ്യവകുപ്പ് എല്ലാ മുൻകരുതലുകളും സ്വീക രിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കെ

രോഗം സംബന്ധിച്ച് ചികിത്സ കൃത്യസമയത്ത് നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആവശ്യ ത്തിന് പ്രതിരോധ മരുന്ന് മുൻകൂട്ടിതന്നെ ശേഖരിച്ചിട്ടുണ്ടെന്നും മന്ത്രി സ്വകാരൃ ചാനലിനോട് പറഞ്ഞു

ഇതിനായി ആശാവർക്കർമാരെ ചുമതല പ്പെടുത്തിയിട്ടുണ്ട്

ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ആവശൃമാണെന്നും പ്രതിരോധിമരുന്ന് കഴിക്കാൻ തയ്യാറാക ണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയ്ൻ ചികിത്സയുടെ ഭാഗമായി അമേരി ക്കയിലേക്ക് യാത്ര തിരിച്ചു

പ്രളയകെടുതിയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞമാസം യാത്ര മാറ്റി വെക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ അഭാവം സംസ്ഥാനത്തെ പ്രളയദുരിതാശ്ചാസ പ്രവർത്തനങ്ങളെ ഒരുതരത്തിലും തടസ്സപ്പെടുത്തില്ലെന്ന് മന്ത്രി ഇ

ജയ രാജൻ തിരുവനന്തപുരത്ത് അറിയിച്ചു ഇതുവരെ കാരൃങ്ങൾ എങ്ങനെ മുന്നോട്ടുപോയോ അതേ തരത്തിൽ തുടർനടപടികളും ഉണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലകളുടെ ചുമതല നൽകിയ മന്ത്രിമാർ ജില്ലാതല പരിപാടികൾ ഏകോപിപ്പിക്കും

പ്രളയബാധയിൽ നഷ്ടപ്പെട്ട പാഠപുസ്തകങ്ങൾക്ക് പകരം പുസ്ത കങ്ങളുടെ വിതരണം നാളെ സ്കൂളുകളിൽ ആരംഭിക്കും ഒന്നുമുതൽ പത്തുവരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളുടെ ഒന്നും രണ്ടും ഭാഗമായിരിക്കും വിതരണം ചെയ്യുക പ്രളയമേഖലയിലെ സ്കൂളു കളിൽ നോട്ട്ബുക്കുകളുടെ വിതരണം ആരംഭിച്ചുകഴിഞ്ഞു നഷ്ടപ്പെട്ട സ്കൂൾബാഗുകളും മറ്റ് പഠന സാമഗ്രികളും നൽകാൻ നടപടി എടുത്തി ട്ടുണ്ട് പ്രളയ ബാധിത ജില്ലകളിൽ രക്ഷാപ്രവർത്തനം നടത്തിയ കോഴിക്കോട് ജില്ലയിലെ മത്സ്യതൊഴിലാളികളെ ജില്ലാ ഭരണകൂടം നാളെ ആദരിക്കും പരിപാടി മന്ത്രി ടി

രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും മഴക്കെടുതിയിൽ തകർന്ന കോഴിക്കോട് ജില്ലയിലെ പൊതുമരാമത്ത് റോഡുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തി നാളെ ആരംഭിക്കും അസം സ്കൃത വസ്തുക്കളുടെ ക്ഷാമം പരിഹരിക്കുന്നതിന് ക്വാറികളുടെ പ്രവർത്തനം നാളെ തുടങ്ങാനും ജില്ലാ വികസന സമിതിയോഗം തീരുമാ നിച്ചു ദേശീയപാതാ ബൈപ്പാസുകളുടെ പുനരുദ്ധാരണം ബുധനാഴ്ച ആരംഭിക്കും പത്തനംതിട്ട മണിയാർ ഡാമിനുണ്ടായ തകരാർ തുലാമഴയ്ക്കുമുൻപ് പരിഹരിക്കണമെന്ന് വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശം ഷട്ടറുകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിനൊപ്പം സ്പിൽവേ ഗൈഡ്വാൾ എന്നിവ യുടെ അറ്റകുറ്റപ്പണികളും നട്ടത്തണ്മെന്ന് ഡാം സന്ദർശിച്ച വിദഗ്ധസംഘം നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ട് അടിയന്തിര പ്രളയ ദുരിതാശ്ചാസ സഹായം ഗുണഭോക്താക്കളുടെ അക്കൌണ്ടിലേക്ക് അയക്കുന്നതിന് തൃശ്ശൂർ ജില്ലയിലെ ട്രഷറികൾ ഇന്നും പ്രവർത്തിപ്പിക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി

എറണാകുളം ജില്ല യിൽ ദൂരിതാശ്ചാസ സഹായം വിതരണം ചെയ്യാൻ ചുമതലപ്പെടുത്തിയ ബാങ്കുകളോട്ട് ഇന്ന് പ്രവർത്തിക്കാൻ ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടിട്ടു ണ്ട് വിവാഹം വിവാഹമോചനം എന്നിവയുൾപ്പെടെ വ്യക്തിപരമായ വിഷ യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ശരിഅത്ത് കോടതികളെ നിയമവിരുദ്ധ മായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ പുതിയ ഹർജി സമർപ്പിച്ചു മുത്തലാഖ് പരിഗണിക്കുന്ന അഞ്ചംഗ ഭരണഘടനാബെഞ്ച് ഈ കേസും പരിഗണിക്കണമെന്ന് കാണിച്ച് അപേക്ഷ നൽകാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജിക്കാരിയോട് ആവശ്യപ്പെട്ടു

മുത്തലാക് സ്ത്രീയോട് കാണിക്കുന്ന ക്രൂരതയായി പരിഗണിക്ക ണ മെന്നും ചടങ്ങു കല്യാണം ഉൾപ്പെടെ മത ത്തിൽ നിലനിൽക്കുന്ന വിവാഹസംബന്ധമായ ചില രീതികൾ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം നിയമവിരുദ്ധമാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടി ട്ടുണ്ട് ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം വൈകീട്ട് നട ക്കുന്ന ചടങ്ങിൽ വനിതാഹോക്കി ടീം ക്യാപ്റ്റൻ റാണി രാംപാൽ ഇന്ത്യൻ പതാകയേന്തും

ജപ്പാൻ രണ്ടാം സ്ഥാനത്തും ദക്ഷിണകൊറിയ മൂന്നാംസ്ഥാനത്തുമാണ് ഇന്ത്യ എട്ടാം സ്ഥാനത്താണ്

ഇയിൽ ആരംഭിക്കുന്ന ഏഷ്യകപ്പ് ക്രിക്ക റ്റിനുള്ള ഇന്ത്യൻ ടീമിനെ രോഹിത് ശർമ്മ നയിക്കും നിലവിലെ നായ കൻ വിരാട് കൊഹ്ലിക്ക് ടൂർണ്ണമെന്റിൽ വിശ്രമം അനുവദിച്ചതോടെയാണ് രോഹിത് ശർമ്മ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ശിഖർധവാനാണ് വൈസ് ക്യാപ്റ്റൻ ടൂർണ്ണമെന്റിൽ ആറ് രാജ്യങ്ങളാണ് പങ്കെടുക്കുക ശ്രീകൃഷ്ണജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ വൻഭക്തജന ത്തിരക്ക്

പ്രളയവും തുടർന്നുണ്ടായ കെടുതികളും മൂലം ജന്മാഷ്ടമി ആഘോഷങ്ങൾ ഒഴി വാക്കി പ്രാർത്ഥനാ ദിനമായി ആചരിക്കുമെന്ന് ബാലഗോകുല മടക്കം സംഘടനകൾ അറിയിച്ചു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർജില്ലയിലെ പ്രധാന ശ്രീകൃഷ്ണക്ഷേത്രങ്ങളിൽ രാവിലെമുതൽ നല്ല തിരക്ക് അനുഭ വപ്പെട്ടു മിക്കക്ഷേത്രങ്ങളും പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ആഘോഷപരിപാടികൾ ഒഴിവാക്കിയിരുന്നു തളിപറമ്പ് തൃച്ചംബരം ശ്രീകൃ ഷ്ണക്ഷേത്രം ചിറക്കൽ കടലായി തലശ്ശേരി തലായി ബാലഗോപാല ക്ഷേത്രം മീങ്കുളം ആദികടലായി എന്നീ ക്ഷേത്രങ്ങളിൽ ഒട്ടേറെപേർ ദർശ നത്തിനായി എത്തി സാങ്കേതിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നവർക്ക് തദ്ദേശസ്ഥാപന ങ്ങളിൽ ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ് നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ

ജലീൽ പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം കൂടുതൽ വേഗ ത്തിലും കാര്യക്ഷമവുമാക്കാൻ ഇതുവഴി സാധിക്കുമെന്ന് മന്ത്രി അറിയി ച്ചു പ്രളയദുരിതമനുഭവിച്ചവർക്കെല്ലാം ആനുകൂല്യം ഉറപ്പാക്കുന്ന രീതി യിലാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി പറഞ്ഞു പീഡനക്കേസിൽ ജലന്ധർബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അറസ്റ്റ് സംബന്ധിച്ച് നാളെ തീരുമാനമുണ്ടായേക്കും

കേസിൽ ബിഷപ്പിന്റെ മൊഴി വ്യാജമാ ണെന്ന് തെളിഞ്ഞതായാണ് റിപ്പോർട്ട് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ലൈസൻസ് ലഭിക്കുന്ന തിനുള്ള നടപടികൾ ഈ മാസം പകുതിയോടെ പൂർത്തിയാകും

വിമാനത്താവള ത്തിൽ സ്ഥാപിച്ച ഇൻസ്ട്രുമെന്റ് ലാന്റിംഗ് സംവിധാനത്തിന്റെ കാലിബ്രേ ഷൻ ഇന്നലെ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു എയർപോർട്ട് അതോറിട്ടിയുടെ ബീച്ച്ക്രാഫ്റ്റ് ബി

ഇത് സംബന്ധിച്ച റിപ്പോർട്ട് എയർപോർട്ട് അതോറിട്ടി വ്യോമയാന ഡ്യറക്ടർ ജനറലിന് കൈമാറും അന്തിമ പരി ശോധന പൂർത്തിയാവുന്നതോടെ ലൈസൻസ് ലഭിക്കു മെന്നാണ് കരുതുന്നത് പാലക്കാട് ജില്ലയിലെ പുഴകളിൽ മണൽകടത്തുന്നവർക്കെതിരെ നട പടി ഊർജ്ജിതമാക്കി ഭാരതപ്പുഴ ഉൾപ്പെടെ നദികളിൽ വലിയതോതിൽ നിറഞ്ഞ മണൽ ലക്ഷ്യമിട്ടാണ് മണൽകടത്ത് സംഘങ്ങൾ സജീവമായി രിക്കുന്നത്

മണൽക്കൊള്ള തടയാൻ രാത്രിയും പകലും പ്രവർത്തിക്കുന്ന റവന്യു സ്കാഡുകൾക്ക് രൂപം നൽകിയതായും അധികൃതർ അറിയിച്ചു

ഇതുമായി ബന്ധപ്പെട്ട് നാല് പേർ അറസ്റ്റിലായി ബാലുശ്ശേരി കോക്കല്ലൂർ തത്തമ്പത്ത് ടി

ഉണ്ണികൃഷ്ണൻ നിര്യാ തനായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് മുൻ ഡെപ്യൂട്ടി ഡയറക്ടറുമായിരുന്നു മുൻ മന്ത്രി എ

ഷൺമുഖദാ സിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് സംസ്കാരം നാളെ നടക്കും ഇന്നലെ അന്തരിച്ച ജനതാദൾ എസ് ദേശീയ നിർവാഹക സമിതി അംഗവും പ്രമുഖ അഭിഭാഷകനുമായ ടീ നിസാർ അഹമ്മദിന്റെ മൃത ദേഹം ഇന്ന് ഉച്ചയ്ക്ക് കണ്ണൂർ താണ അഹമ്മദീയ പളളി ഖബർസ്ഥാ നിൽ ഖബറടക്കും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണ റായി വിജയൻ അനുശോചിച്ചു ഈ വർഷത്തെ മയിൽപ്പീലി പുരസ്കാരം കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തു സംഗീതജ്ഞൻ രമേശ് നാരായണൻ നർത്തകി അശ്വതി ശ്രീകാന്ത് കിയാൽ എം

തുളസീദാസ് എന്നിവർക്കാണ് പുരസ്കാരം ലഭിച്ചത്

സർഗാത്മക സാഹിത്യം വൈജ്ഞാനിക സാഹിത്യം ബാലസാഹിത്യം എന്നീ മേഖലകളിൽ അധ്യാപകരുടെ മികച്ച കൃതികൾക്കാണ് പുരസ്കാരം നൽകുക

ചന്ദ്രൻ മുട്ടത്തിന്റെ ചിലമ്പ്തെയ്യം ഉൽപ്പത്തിയും ചരിത്രവും ജയചന്ദ്രൻ പൂക്കരത്തറയുടെ കാന്താരതാരകം കെ

സുരേ ഷിന്റെ നാടകക്കൂട് എന്നിവയാണ് പുരസ്കാരത്തിന് അർഹമായ കൃതി കൾ